കോവിഡ് വാക്സിൻ വരുന്നതുവരെ സോഷ്യൽ വാക്സിൻ എന്ന നിലയിൽ ജാഗ്രത തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഇന്ത്യ അമേരിക്ക്പ് ്തന്ത്രപ്രധാന സഹകരണ ഉച്ചകോടിയിൽ മുഖ്യപ്രഭാഷ്ട്ണും ന്ടത്തുകയായിരുന്നു അദ്ദേഹം

മനുഷ്യകേന്ദ്രീകൃത വികസനമാണ് വേണ്ടതെന്ന പുതിയ ചിന്താഗതിയാണ് ഈ കോവിഡ് സാഹചര്യത്തിൽ ആവശ്യം ആഗോള വിതരണ ശൃംഖല വിലയെക്കാൾ ഉപരി വിശ്വാസത്തിൽ ഊന്നിയുള്ളതാകണമെന്ന് ഈ മഹാമാരി നമ്മെ പഠിപ്പിച്ചതും പ്രധാനമന്ത്രി പറഞ്ഞു

എസ് പ്രൊബ്ബേഷ്ണർമാരുടെ ദിക്ഷാന്ത് പരേഡിനെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും ഹൈദരാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയ പൊലീസ് അക്കാദമിയിലാണ് പരേഡ് നടത്തുന്നത്

എസ് കേഡറ്റുകളുമായി പ്രധാനമന്ത്രി സംവദിക്കും

റഷ്യൻ പ്രതിരോധമന്ത്രി ജനറൽ സെർജി ഷോയിഗുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന ഷാങ്ഹായ് അംഗരാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച ഇന്ത്യയുടെ ആയുധ സംഭരണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളോട് തക്കസമയത്ത് പ്രതികരിച്ചതിന് ശ്രീ രാജ്നാഥ്സിംഗ് റഷ്യയോട് നന്ദിപറഞ്ഞു

നയതന്ത്ര സൈനിക്കും ചർച്ചകളാണ് ഇരുരാജ്യങ്ങൾക്കും മുന്നിലുള്ളതെന്നും വിദേശകാര്യമന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രശ്നങ്ങൾ സമാധാന ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ചൈനയുടെ ഏകപക്ഷീയ നിലപാടുകളാണ് കഴിഞ്ഞ നാലുമാസത്തിലെ സ്ഥിതിഗതികൾക്ക് കാരണമെന്നും അദ്ദേഹം വൃക്തമാക്കി

മൊറട്ടോറിയം കാലാവധി അവസാനിക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പാക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി നിർദേശം നൽകി

ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ എൻ

ഡി പി വളർച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതി വരുമാന അന്തരം ജി

പുതിയ ക്ലസ്റ്ററുകൾ ഉണ്ടാവാനും ശക്തമായ വ്യാപനത്തിനുമുള്ള സാധ്യത മുന്നിൽ കണ്ട് വേണം ജാഗ്രത പുലർത്തേണ്ടത്

ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കത്തിന്റെ തോത് വർധിച്ചിട്ടുണ്ട്

ഇതിന്റെയെല്ലാം ഫലമായി രോഗവ്യാപനം വർധിച്ചിട്ടുണ്ടോ എന്ന് വൃക്തമാകാൻ ഇനിയും ദിവസങ്ങളെടുക്കുമെന്നും മുഖ്യമന്ത്രി പ റഞ്ഞു

ക്രൂഡ് ഓയിൽ കൊണ്ടു വരികയായിരുന്ന ന്യൂഡയമണ്ട് എന്ന കപ്പലിനാണ് തീപിടിച്ചത്

കപ്പൽ ഒഡീഷയിലെ പാരദ്വീപിൽ നാളെ എത്താനിരിക്കെയാണ് അപകടം

ഇതു സംബന്ധിച്ച കരട് വിജ്ഞാപനം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം പുറപ്പെടുവിച്ചു

കോവിഡ് മഹാമാരി ഈ ഉത്പന്നങ്ങളുടെ പ്രസക്തി കൂട്ടുന്നതായി മന്ത്രി പറഞ്ഞു

എയർ ഇന്ത്യ വിമാനങ്ങളും സ്വകാരൃ ചാർട്ടേഡ് വിമാനങ്ങളും നാവികസേന കപ്പലുകളും അതിർത്തിയിലൂടെയുള്ള കടന്നുവരവും ഇതിനായി ഉപയോഗപ്പെടുത്തി